ഐ എം സ്വതന്ത്രാ നേഷണത്തെ ഭയക്കുകയാണെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാ ണ്ടി

സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് കടപ്പുറത്ത് നിർവഹിക്കും മന്ത്രി ഇ ചന്ദ്ര ശേഖരൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ടി പി രാമകൃ ഷ്ണൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കട ന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിക്കും എട്ടു ദിവസത്തെ പരിപാടികളുടെ ഭാഗമായി വിവിധ വകുപ്പു കളുടെയും മിഷനുകളുടെയും പ്രദർശനവും ബീച്ചിൽ സംഘടി പ്പിച്ചിട്ടുണ്ട് ദിനാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും വിപുലമായ പരിപാടികളും നിരവധി പദ്ധതികളുടെ ഉദ്ഘാടന വുമുണ്ടാകും അടുത്ത ബുധനാഴ്ച തിരുവനന്തപുരത്താണ് പരി പാടികളുടെ സമാപനം പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിർവഹിക്കും കേര ളശ്ശേരിയിലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സ്മാരകം കാരാക്കു റുശ്ശിയിലെ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ സ്മാരക റോഡ് മീനാ ക്ഷിപുരം പ്രീമെട്രിക് ഹോസ്റ്റൽ എന്നിവയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷ പരിപാടി കളുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം വൈകിട്ട് ടൌൺ സ്ക്യ റിൽ മന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും

ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നുമുതൽ ഗതാഗതനിയന്ത്രണം ഏർപ്പെ ടുത്തും വൈകിട്ട് അഞ്ചുവരെയായിരിക്കും നിയന്ത്രണം

എഫിന്റെ കേരള സംരക്ഷണയാത്രയുടെ ഭാഗമായി സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാജാഥ നാളെ കോഴിക്കോട് ജില്ലയിലെത്തും

സംസ്ഥാനത്ത് കൂടിവരുന്ന റോഡപകടങ്ങളുടെ പശ്ചാത്തല ത്തിൽ മോട്ടോർവാഹന വകുപ്പ് ആവിഷ്ക്കരിച്ച സേഫ് കേരള പദ്ധതിക്കും ഇന്ന് തുടക്കമാകും

കാസർകോട് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക രുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി

ഐ

കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നീതി ലഭിക്കു ന്നതുവരെ യു ഡി എഫ് ഒരുവിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന്റെ സംരക്ഷണം യു ഡി

കാസർകോട് കലക്ടറേറ്റിന് മുന്നിൽ സി

എം അക്ര മത്തിനെതിരെ യു ഡിഎഫ് ഏകദിന ഉപവാസസമരത്തിൽ സംസാ രിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി കൊലപാതകത്തിൽ പാർട്ടിയ്ക്ക് പങ്കില്ലെന്നാണ് പറയുന്നതെ ങ്കിൽ കേസിൽ ഗൂഢാലോചന ഉൾപ്പെടെ സി

കാസർകോട് പെരിയയിലെ ഇരട്ടക്കൊലപാതകം പൈശാചി കവും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണെന്ന് മുതിർന്ന് സി

എം നേതാവ് വി

രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്മൂലനത്തിലൂടെ പരിഹരിക്കുന്നത് സി

എം രീതിയല്ലെന്നും പാർട്ടി അംഗങ്ങളിൽ അത്തരം ചിന്ത ഉണ്ടാകുന്നത് ഗുരുതര വൃതിയാനമാണെന്നും അച്യുതാന ന്ദൻ സ്വകാര്യചാനലിനോട് പറഞ്ഞു കാസർകോട് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു രാവിലെയാണ് അദ്ദേഹം പ്രവർത്തകരോടൊപ്പം വീടുകളിലെത്തിയത് പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സി ആർ

എഫ് ജവാൻ വി വി വസന്തകുമാറിന്റെ വയനാട് വൈത്തി രിയിലെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു രാവിലെ എട്ടുമണിയോടെയാണ് മുഖ്യമന്ത്രി വീട്ടിലെത്തി കുടും ബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യുവരിച്ച സി

എഫ് ജവാൻമാരുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മാതാഅമൃതാനന്ദമയീ മഠം അറിയി ച്ചു രാജ്യത്തെ രക്ഷിക്കാൻ ധർമ നിർവഹണം ചെയ്യുന്നതിനിടെ വീരമൃത്യുവരിച്ചവർക്കൊപ്പം നിൽക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യ തയാണെന്ന് മാതാഅമൃതാനന്ദമയി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഗവൺമെന്റാണ് ഇടതു പക്ഷത്തിന്റേതെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കേരള സംരക്ഷണയാത്രയ്ക്ക് കൊല്ലത്ത് നൽകിയ സ്വീകരണ ത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ചേർന്നാൽ പോലും നരേന്ദ്രമോദിയ്ക്ക് തുല്യമാവില്ലെന്ന് ശിവസേനവിലയിരുത്തി

പി യും ശിവസേനയും തമ്മിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ശിവസേനയുടെ പ്രതികരണം

മനപൂർവ്വം പണം നൽകാത്ത റിലയൻസിന്റെ നടപടി കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി കോടതി ഉത്തരവ് പാലിക്കാ മെന്ന കമ്പനി ചെയർമാൻ സതീഷ് സേത്തിന്റെയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഉറപ്പ് അവർ പാലിച്ചില്ലെന്നും കോടതി കണ്ടെ ത്തി

പട്ടികജാതി പട്ടികവർഗ്ഗ നിയമ ഭേദ ഗ തിക്കെ തിരെ സമർപ്പിച്ച പുതിയ ഹർജി കൾക്കൊപ്പം ഗവൺമെന്റിന്റെ റിവ്യൂ ഹർജിയും പരിഗണിക്കാനാണ് കോടതി യുടെ തീരുമാനം തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീക രിച്ച് മത്സരിക്കാൻ അണ്ണാ ഡി

യും ബി

പിയും പി

പി അഞ്ചിടത്തും പി

കെ ഏഴ് സീറ്റിലും മത്സരിക്കാൻ ധാരണ യിൽ എത്തി തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാലയർപ്പണം പുരോഗ മിക്കുന്നു ഭക്തലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പി ക്കാൻ നഗരത്തിന്റെ പത്ത്കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലയടു പ്പുകൾ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്തേകാലോടെ മേൽശാന്തി എൻ വിഷ്ണുനമ്പൂതിരി തന്ത്രിയിൽ നിന്ന് സ്വീകരിച്ച ജ്യോതിയിൽ നിന്ന് പണ്ടാരയടുപ്പിലേക്ക് അഗ്നിപകർന്നു

സംസ്ഥാന സാംസ്കാരിക വകുപ്പും കേരള ഫോക് ലോർ അക്കാദമിയും ചേർന്ന് കണ്ണൂർ പൊന്ന്യത്ത് സംഘടിപ്പിക്കുന്ന പൊ ന്ന്യത്ത് അങ്കം നാളെ ആരംഭിക്കും ഇതോടനുബന്ധിച്ച് നിർമ്മിച്ച അങ്കത്തട്ടിന്റെ സമർപ്പണവും നാളെ നടക്കും

വ്യവസായ വകുപ്പിന് കീഴിൽ കേരള ക്രെയിസ് ആന്റ് സെറാ മിക് പ്രൊഡക്ട് ലിമിറ്റഡ് കണ്ണൂർ മാങ്ങാട്ട് പറമ്പിൽ ആരംഭിക്കു ന്ന സ്റ്റാർട്ടപ്പ് മലബാർ ഇൻക്യുബേഷൻ സെന്റർ മറ്റന്നാൾ മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

വി രാജേഷ് എം

സംസ്ഥാന സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ചാണ് ജില്ല യിൽ പുതിയ യൂണിറ്റ് ആരംഭിക്കുന്നത്

ഇന്നലെ കേരളത്തിന് ഒരു സ്വർണവും രണ്ട് വെള്ളിയും ഉൾപ്പെടെ മൂന്ന് മെഡലുകൾ ലഭി ച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫി സംസ്ഥാന ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കൊച്ചിയിൽ തുടങ്ങും ഒമ്പത് പുരുഷ ടീമു കളും ഏഴ് വനിതാ ടീമുകളും പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ഫെഡറേഷൻ കപ്പിന് യോഗ്യത നേടും കൊച്ചി ജീമാസ് കാർമൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ

സെന്റ് സേവ്യേഴ്സ് കെ

എ ഗ്രൌണ്ടിലാണ് മത്സരം ചെന്നൈയിൽ പ്രോ വോളി ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം സെമി യിൽ ഇന്ന് കൊച്ചി സ്പൈക്കേഴ്സും ചെന്നൈ സ്പാർട്ടൻസും ഏറ്റുമുട്ടും ഇതിലെ വിജയികളായിരിക്കും ഫൈനലിൽ കാലി ക്കറ്റ് ഹീറോസിന്റെ എതിരാളികൾ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ബി സോൺ കലോ ത്സവം ബേണിങ് ബെഞ്ചിന് പേരാമ്പ്ര സി

ജി ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി നൂറിലേറെ കോളേജുകളിൽ നിന്നായി മൂവായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുമെന്ന് യൂണിയൻ ഭാര വാഹികൾ അറിയിച്ചു

സോൺ മത്സര ങ്ങൾ കലോത്സവം ഞായറാഴ്ച സമാപിക്കും എറണാകുളം സൌത്ത് റെയിൽവെസ്റ്റേഷന് സമീപം ചെരിപ്പ് ഗോഡൌണിൽ വൻതീപിടിത്തം

ഫയർഫോഴ്സും പൊലീസുമെത്തി തീ അണ യ്ക്കാൻ ശ്രമം തുടരുകയാണ് സ്വർണ്ണവില സർവകാലറെക്കോർഡിലെത്തി

മദ്രസയിൽ നിന്ന് തിരിച്ചുവരു മ്പോൾ രാവിലെ എട്ടരയോടെയായിരുന്നു അപകടമെന്ന് വളയം പൊലീസ് പറഞ്ഞു പരിക്കേറ്റ അന്ന ഫാത്തിമ നാദിയ എന്നി വരെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റപ്പാലത്തിനും ലക്കിടിക്കുമിടയിൽ റെയിൽപാളത്തിലെ അറ്റ കുറ്റപ്പണികളെ തുടർന്ന് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനിന്റെ സമയത്തിൽ മാറ്റം വരുത്തിയതായി റെയിൽവെ അറി യിച്ചു

കൊല്ലം ചെമ്മാൻമുക്കിൽ കെ

ജലജ അപകടസ്ഥലത്തും മകൾ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് മരിച്ചത് ചെമ്മാൻമുക്ക് ഭാരതരാജ്ഞി പളളിക്കുസമീപം രാവിലെ ആറരയോടെ യായിരുന്നു അപകടം

ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിരുവിതാംകൂർ ദേവസം ബോർഡിന്റെ ശരണാശ്രയ പദ്ധതി നാളെ തുടങ്ങും